റഷ്യൻ പ്രസിഡന്റ് വ്ളാദമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ബ്രസീൽ പ്രസിഡന്റ് ജൈർ ബൊൽസൊനാരോ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും

പുതിയ ആഗോള സാഹചര്യത്തിൽ ബ്രിക്സ് രാജൃങ്ങൾ തമ്മിലുള്ള ബഹുമുഖ സഹകരണത്തെക്കുറിച്ചും ഉള്ച്ചുകോടി ചർച്ച ചെയ്യും ഓൺലൈനായി സംഘടിപ്പിക്കുന്നു ഉച്ച്കോടിയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം വ്യാപാര്യം ആർജ്ജം ജനങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നീ വിഷയങ്ങളെക്കുറിച്ചും നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തും

രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ കേവലം സംവാദങ്ങൾ ആയി മാറിയെന്നും മികച്ച പരിഹാരം കണ്ടെത്തുന്നതിൽ ഇവ പരാജയപ്പെടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

സി

ആറുമായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായും സഹകരിച്ചാണ് പരീക്ഷണമെന്ന് കോവാക്സിൻ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന ഭാരത് ബയോടെക് അറിയിച്ചു രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിനായി നടത്തുന്ന ഏറ്റവും വലിയ ഗവേഷണമാണിത് വാക്സിൻ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം വിജയം കണ്ടിരുന്നു ഇന്ത്യൻ ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ അനുമതിയോടെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്

ഗ്രൂപ്പുകളെ പരസ്പരം ഇടകലർത്തിയാണ് പരീക്ഷണമെന്നതിനാൽ ആർക്കാണ് മരുന്ന് നൽകിയിരിക്കുന്നതെന്ന് രോഗികൾക്കോ ബന്ധപ്പെട്ട കമ്പനിക്കോ അറിയാനാകില്ല രോഗപ്രതിരോധവിവരങ്ങളുടെ രഹസ്യസ്ഥഭാവം സുരക്ഷ എന്നിവ ഉറപ്പാക്കി നടത്തിയ പരീക്ഷണങ്ങളുടെ ഒന്നും രണ്ടും ഘട്ട പരിശോധനകൾ വിജയകരമായിരുന്നു ആയിരത്തോളം ഘടകങ്ങളാണ് ഈ ഘട്ടങ്ങളിൽ പരീക്ഷണിവിധേയമാക്കിയത് ഭാരത് ബയോടെക്കിന്റെ ബി എസ്

രണ്ട് ദിവസത്തിനകം പരിശോധന റിപ്പോർട്ട് സമർപ്പിക്കാൻ സംഘത്തിന് നിർദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളിലെ കോവിഡ് ചികിൽസാ സൌകര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും ആഭ്യന്തരമന്ത്രാലയം വിദഗ്ധസംഘത്തിന് കൈമാറിയിട്ടുണ്ട്

യുജിസി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ആർ ടി പി സി ആർ പരിശോധനയിൽ നെഗറ്റീവായ വിദ്യാർഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും മാത്രമേ കോളേജുകളിൽ പ്രവേശിപ്പിക്കൂ

വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നു

കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള രക്ഷിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് പരീക്ഷാഫീസ് ഒഴിവാക്കാൻ സി ബി എസ് ഇ ക്കും ഡൽഹി ഭരണകൂടത്തിനും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജി

സാരായി കലേ ഖാൻ മേഖലയിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേകസംഘം ജമ്മു കാശ്മീർ സ്വദേശികളായ ഇവരെ പിടികൂടിയത്

രാജ്യതലസ്ഥാനത്ത് ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി

ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജൃങ്ങളുടെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തമാകുന്ന് സംയോജിത പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ നടക്കും പ്രക്ഇന്ത്യയുടെ വിമാന വാഹിനിയായ വിക്രമാദിതൃയും അമേരിക്കയുടെ നിമിറ്റ്സും കേന്ദ്രീകരിച്ചാകും അഭ്യാസ പ്രകടനങ്ങൾ മറ്റ് നിരവധി കപ്പലുകളും അന്തർവാഹിനികളും പോർവിമാനങ്ങളും അഭ്യാസത്തിന്റെ ഭാഗമാകും നാല് ദിവസത്തെ തീവ്രപരിശീലനമാണ് ഈ ഘട്ടത്തിലുളളത്

ശൈത്യകാല ആരംഭത്തെ തുടർന്ന് മോശമായ വായു ഗുണനിലവാരം ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം വളരെ മോശം സ്ഥിതിയിൽ എത്തിയിരുന്നു

അത്സ്മയം അമേരിക്കയിൽ കോവിഡ് വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം വിജയകരമാണെന്ന് നിർമാതാക്കളായ മോഡേണ കമ്പനി അറിയിച്ചു

സ്വർണ്ണവില കുറഞ്ഞു

കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്

കേരളാ തീരത്ത് മത്സ്യബന്ധനത്തി്ന് വിലക്കുണ്ട്

ലോകാരോഗൃ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആരോഗൃ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ലോകമൊട്ടാകെയുള്ള പൊതുജനാരോഗൃ മേഖലയിൽ ആഗോള കൂട്ടായ്മകളുടെ നിക്ഷേപം ആവശ്യമാണ് തെക്ക് കിഴക്ക് ഏഷ്യൻ മേഖലയും ഇന്ത്യയും ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ തുടർച്ചയായി പരിശ്രമിക്കുകയാണെന്നും ഡോ

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് ട്രഷറിയിലോ ബാങ്കിലോ എത്താൻ സാധിക്കാത്തവർക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സൌകരൃമാണ് ഇ

എഫ് ഒ ഒരുക്കുന്നത്